കെ ശശീന്ദ്രൻ കേന്ദ്രത്തെ പ്രതിഷേധം അറിയിച്ചു

വാർത്തകൾ വിശദമായി രാജ്യത്തെ കോവിഡ് വ്യാപനം നിയന്ത്രിക്കാനും ചികിത്സാ സൌകര്യം ശക്തിപ്പെടുത്താനും സംസ്ഥാനങ്ങളുമായും കേന്ദ്രഭരണ പ്രദേശങ്ങളുമായും കൂടിയാലോചിച്ച് അടിയന്തര ആസൂത്രണ നടപടികൾ സ്വീകരിക്കാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആരോഗ്യമന്ത്രാലയത്തിന് നിർദ്ദേശം നൽകി ഇന്നലെ ന്യൂഡൽഹിയിൽ മുതിർന്ന മന്ത്രിമാരുമായും ഉദ്യോഗസ്ഥരുമായും നടത്തിയ അവലോകന യോഗത്തിലാണ് പ്രധാനമന്ത്രി ഇക്കാര്യം മഴക്കാലം മുൻനിർത്തി ആവശ്യപ്പെട്ടത് പ്രത്യേക മുൻകരുതലെടുക്കാനും അദ്ദേഹം നിർദ്ദേശിച്ചു

കൊല്ലത്ത് ഇന്നലെ ആർക്കും കോവിഡ് സ്ഥിരീകരിച്ചില്ല

പത്തുപേർക്ക് സമ്പർക്കത്തിലൂടെ രോഗം ബാധിച്ചു

കണ്ണൂർ ജില്ലയിലെ നടുവിൽ പാപ്പിനിശ്ശേരി എന്നിവ പുതിയ ഹോട്ട്സ്പോട്ടുകളായി

രുര തൃശൂർ ജില്ല അതീവ ജാഗ്രതയോടെ മുന്നോട്ട് നീങ്ങുകയാണ് ഇന്നലെ നാല് കേസുകൾ മാത്രമാണ് ജില്ലയിൽ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് കൂടുതൽ വിവരങ്ങളുമായി ജില്ലാ പ്രതിനിധി ഭരിത പ്രതാപ്

ഇയാളെ കണ്ണൂരിലെ ഗവ മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ചു

കൊടുവള്ളി സ്വദേശി സാബിർ ആണ് മരിച്ചത്

ഈ മാസം ഏഴിനാണ് വിമാനത്താവള ടെർമിനൽ മാനേജരിൽ നിന്ന് പരിശോധനയ്ക്ക് സാമ്പിൾ ശേഖരിച്ചത് രുമ ചാർട്ടേഡ് വിമാനങ്ങളിൽ നാട്ടിലേക്ക് വരുന്ന വ്രവാസി മലയാളികൾക്ക് വിദേശത്തെ കോവിഡ് ടെസ്റ്റ് സർട്ടിഫിക്കറ്റ് പ്രായോഗികമല്ലെന്ന് പി കെ കുഞ്ഞാലിക്കുട്ടി എം

നാട്ടിൽ ക്വാറന്റൈൻ കൃത്യമാക്കുകയല്ലാതെ അവരുടെ വരവിന് തടസ്സമുണ്ടാക്കുന്നത് ശരിയല്ലെന്നും അദ്ദേഹം പറഞ്ഞു കോവിഡ് ടെസ്റ്റ് നടത്തിയേ വരാവൂ എന്ന് പറയുന്നത് പ്രായോഗികല്ലെന്ന് എം

സംസ്ഥാനത്ത് ക്വാറന്റൈൻ സൌകര്യം ഒരുക്കാതെയും പരിശോധന നടത്താതെയും അവരെ വീട്ടിലേക്ക് വിടുകയാണെന്നും വ്യാപനത്തിന്റെ മുഴുവൻ ഉത്തരവാദിത്വം അവർക്കാണ് എന്ന് പറയുന്നതിൽ എന്ത് അർത്ഥമാണെന്നും മുനീർ ചോദിച്ചു രുമ ഇന്നത്തെ സമ്പൂർണ്ണ ലോക്ഡൌണിൽ വിദ്യാർത്ഥികൾക്കും ആരാധനാലയങ്ങളിലേക്ക് പോകുന്നവർക്കും യാത്രാ ഇളവ് അനുവദിച്ചു പരീക്ഷകളിൽ പങ്കെടുക്കാൻ പോകുന്ന വിദ്യാർത്ഥികൾ പരീക്ഷാ നടത്തിപ്പ് ചുമതലക്കാർ മെഡിക്കൽ ഡെന്റൽ കോളേജുകൾ ഉൾപ്പെടെ സ്ഥാപനങ്ങളിൽ പ്രവേശനത്തിന് പോകുന്ന വിദ്യാർത്ഥികൾ വീടുകളിൽ നിന്ന് ആരാധനാലയങ്ങളിലേക്കും തിരിച്ചും പോകുന്നവർ എന്നിവർക്കാണ് ഇളവെന്ന് ചീഫ് സെക്രട്ടറിയുടെ ഉത്തരവിൽ പറയുന്നു രുമ തിരികെയെത്തുന്ന അതിഥി തൊഴിലാളികളുടെ ക്വാറന്റൈൻ ചുമതല അവരെ കൊണ്ടുവരുന്ന ഏജന്റുമാർ ഏറ്റെടുക്കണമെന്ന് കണ്ണൂർ ജില്ലാ കലക്ടർ ടി

വീഴ്ച വരുത്തുന്ന ഏജന്റുമാർക്കെതിരെ ക്രിമിനൽ നടപടികൾ സ്വീകരിക്കുമെന്നും കലക്ടർ മുന്നറിയിപ്പ് നൽകി രുര രുചിയും മണവും തിരിച്ചറിയാൻ കഴിയാതെ വരുന്നത് കോവിഡിന്റെ ലക്ഷണങ്ങളിൽ ഉൾപ്പെടുത്തി ആരോഗ്യ കുടുംബ ക്ഷേമ മന്ത്രാലയം ക്ലിനിക്കൽ മാനേജ്മെന്റ് പ്രോട്ടോകോൾ പുതുക്കി ആന്റിവൈറൽ മരുന്നുകളുടെ ഉപയോഗത്തിലും പ്ലാസ്മ തെറാപ്പിയിലും ഹൈഡ്രോക്സി ക്ലോറോക്വിൻ ഗുളികകളുടെ കാര്യത്തിലും പുതിയ മാർഗ്ഗ നിർദ്ദേശങ്ങൾ മന്ത്രാലയം നൽകിയിട്ടുണ്ട്

കെ ശശീന്ദ്രൻ കേന്ദ്ര പെട്രോളിയം മന്ത്രി ധർമ്മേന്ദ്ര പ്രധാനെ അറിയിച്ചു ക്രൂഡോയിലിന്റെ വില കുറഞ്ഞതിനനുസരിച്ച് ഇന്ധനവില കുറയ്ക്കുന്നതിന് എണ്ണക്കമ്പനികൾക്ക് നിർദ്ദേശം നൽകണമെന്നും വർദ്ധിപ്പിച്ച എക്സൈസ് ഡ്യൂട്ടി കുറയ്ക്കാൻ അടിയന്തര നടപടി ഉണ്ടാവണമെന്നും മന്ത്രി കത്തിൽ ആവശ്യപ്പെട്ടു

ഉറുദു സംസ്കൃതം അറബിക് വിഷയങ്ങളുടെ വീഡിയോ ക്ലാസുകളും നാളെ തുടങ്ങുന്ന ഷെഡ്യൂളിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് രുമ ഇന്ന് ലോക രക്തദാന ദിനം

സുരക്ഷിത രക്തദാനത്തെപ്പറ്റിയും രക്തഘടകങ്ങളെപ്പറ്റിയും അവബോധം സൃഷ്ടിക്കാനും രക്തദാനം പ്രോത്സാഹിപ്പിക്കാനുമാണ് ദിനാചരണം രുമ അടുത്ത ഞായറാഴ്ച അന്താരാഷ്ട്ര യോഗ ദിനാചരണത്തിൽ എല്ലാവരും വീടുകളിൽ യോഗ പരിപാടിയിൽ പങ്കെടുക്കണമെന്ന് ആയുഷ് വകുപ്പ് മന്ത്രി ശ്രീപദ് യെശോ നായിക് അഭ്യർത്ഥിച്ചു കോവിഡ് സാഹചര്യത്തിൽ പൊതു വേദികളിലെ യോഗ പരിപാടികൾ ഒഴിവാക്കിയിട്ടുണ്ട് രുമ കോഴിക്കോട് പയ്യോളിക്കടുത്ത് കാറും ടാങ്കർ ലോറിയും കൂട്ടിയിടിച്ച് കണ്ണൂർ സ്വദേശികളായ രണ്ടു പേർ മരിച്ചു കാറിലുണ്ടായിരുന്ന ചാലയിലെ ആഷിഖ് മകൾ ആയിഷ എന്നിവരാണ് മരിച്ചത്

ഇന്നലെ രാത്രി പത്തു മണിയോടെയായിരുന്നു അപകടം രുമ സംസ്ഥാനത്ത് അടുത്ത രണ്ടുദിവസം ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം മുന്നറിയിപ്പ് നൽകി മലപ്പുറം ജില്ലയിൽ ഇന്നും കോഴിക്കോട് വയനാട് കണ്ണൂർ കാസർകോട് ജില്ലകളിൽ ഇന്നും നാളെയും യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു രമേ മിഥുനമാസ പൂജകൾക്കായി ശബരിമലയിൽ ഇന്ന് നട തുറക്കും കോവിഡ് കശ്ചാത്തലത്തിൽ ഭക്തർക്ക് പ്രവേശനം ഉണ്ടാകില്ല വെള്ളിയാഴ്ച നടയടയ്ക്കും ദേദ ഫിഷറീസ് വകുപ്പിന്റെ ആഭിമുഖ്യത്തിൽ തീരദേശ വികസന കോർപ്പറേഷൻ കൊല്ലം പെരിനാട് നിർമ്മിക്കുന്ന ആയുർവേ ആശുപത്രിയ്ക്ക് മന്ത്രി ജെ മേഴ്സിക്കുട്ടിയമ്മ തറക്കല്ലിട്ടു